ഉണ്ടാകണമെന്ന് ഐ

തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

നടപ്പാക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമെന്ന് മുഖൃമന്ത്രി

റൌണ്ട്റോബിൻ മത്സരത്തിൽ ദക്ഷിണ കൊറിയക്കെതിരെ ഇന്തൃയ്ക്ക് ജയം

ടി വ്യവസായ മേഖലയോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

രാജ്യത്തെ ഐ

ജനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായും അനുകൂലമാറ്റം കൊണ്ടുപ്പർട്ടനും താല്പര്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ യുവജനത സാങ്കേതികവിദ്യയുടെ ശക്തി പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരെ സാങ്കേതികമായി ശാക്തീകരിക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ സംസാരിക്കവെ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ചടങ്ങിൽ മേം നഹീം ഹം എന്ന വെബ്പോർട്ടലും മൊബൈൽ ആപ്തിക്കേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഈ പോർട്ടലിലൂടെ സാമൂഹ്യസേവനത്തിനായി വിവരസാങ്കേതിക വിദഗ്ധർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘത്തിന്റെ സംസ്ഥാനത്തെ മൂന്നു ദിവസത്തെ സ്ന്ദർശനത്തിന്റെ അവസാന ദിനത്തിൽ ഹൈദരാബാദിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സുതാര്യമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കണമെന്ന് ശ്രീ റാവത്ത് നിർദ്ദേശിച്ചു രാഷ്ട്രീയം ചെലവ് സുരക്ഷ എന്നിവയ്ക്കായുള്ള നീരീക്ഷകർക്ക് പുറമെ സമ്മതിദാനത്തിനുള്ള അവസരം സംബന്ധിച്ചും ഒരു നിരീക്ഷകനെ കൂടി നിയോഗിക്കുമെന്നും മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

പത്രിക പിൻവലിക്കാനുള്ള അവസാന്ട്രിവസം നാളെയാണ്

ബീഃഎസ് സിക്സ് ഇന്ധന മാനദണ്ഡ പ്രകാരമുള്ള വാഹനങ്ങൾ മാത്രമേ വിൽക്കാൻ കഴിയൂവെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു ഇപ്പോൾ ബി

വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയുടെ അളവ് നിശ്ചയിക്കുന്ന മാനദണ്ഡമാണ് ബി എസ് അഥവാ ഭാരത് സ്റ്റേജ് നിബന്ധന

എല്ലാ ഭാരതീയർക്കും വേണ്ടി പുരസ്ക്കാരം സ്വീകരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ ഇന്ത്യയുടെ സൃഷ്ടിക്കുള്ള പ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരമാണിതെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

സിബിഐയുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിനും നീതിയുക്തമായ പ്രവർത്തനത്തിനുമാണ് രണ്ട് ഉദ്യോഗസ്ഥരും അവധിയിൽ പ്രവേശിച്ചത് സിബിഐ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയാണെന്നും ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് പരമപ്രധാനമാണെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു

എക്സ്പ്രസ്സ് ട്രെയിനും രണ്ട് പ്രാദേശിക ട്രെയിനുകളും ഒരേ സമയം സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ് തിരക്കിന് കാരണമായത് സംഭവത്തെ തുടർന്ന് ഉന്നയിക്കപ്പെട്ട എല്ലാ പരാതികളും കമ്മിറ്റി പരിശോധിക്കുമെന്ന് തെക്കുകിഴക്കൻ റെയിൽവേ വക്താവ് അറിയിച്ചു

സുപ്രീം കോടതി വിധി നിയമമാണ് അത് നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് വിധി നടപ്പാക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുനഃപരിശോധന ഹർജിയുമായി പോകുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മത നിരപേക്ഷത തകർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭരണഘടനയെ അംഗീകരിക്കാത്തതെന്ന് മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു

ജി

സംസ്ഥാന പോലീസിന്റെ വെർചൽ ക്യൂ സംവിധാനം കെ എസ് ആർ ടി സി സോഫ്റ്റുവെയറുമായി ബന്ധിപ്പിക്കും ഇതിനായുള്ള പോർട്ടൽ ഉടൻ പ്രവർത്തനക്ഷമമാകും സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നും ഡി ജി പി അറിയിച്ചു

എയ്ഡഡ് കോളേജുകളിൽ ഇനി പുതിയ് സ്വാശ്രയ കോഴ്സുകൾ അനുവദിക്കില്ലെന്നും മന്ത്രി അ്റിയിച്ചു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നതോടെ വിദൂര പ്രിദ്യാഭ്യാസം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നിവ ഇതിനു കീഴിൽക്കുമെന്നും ശ്രീ ജലീൽ പറഞ്ഞു

അവസാന പന്തുവരെ ആവേശം നിറഞ്ഞുനിന്ന മത്സരമാണ് ആരും തോൽക്കാതെയും ജയിക്കാതെയും കളി പൂർത്തിയായത് വിശദാംശങ്ങളുമായി വീണാ മുകുന്ദൻ

ഉമേഷ് യാദവിന്റെ അവസാന പന്ത് ബൌണ്ടറിയിൽ എത്തിച്ച ഷായ്ഹോപ്പാണ് വിൻഡീസിന് സമനില സമ്മാനിച്ചത്

വിരാട് കോഹ്ലി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സെഞ്ചുറി നേടി

അഞ്ചുദിന പരമ്പരയിലെ മൂന്നാം മത്സരം ശനിയാഴ്ച പൂനെയിൽ നടക്കും

ശനിയാഴ്ചയാണ് സെമി ഫൈനൽ മത്സരം

ജപ്പാന്റെ സീന കവാകമിയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സൈന തോൽപ്പിച്ചത്

അതേസമയം സമിർവർമ ഇന്തോനേഷ്യയുടെ ജൊനാതൻ ക്രിസ്റ്റിയോട് പരാജയപ്പെട്ടു

മഹാദേവൻ പിള്ളയെ ഗവർണർ പി സദാശിവം നിയമിച്ചു

കേരള സർവ്വകലാശാലയിൽ അപ്ലെഡ് സയൻസ് ഡീനും ഒപ്ടോ ഇലക്ട്രോണിക്സ് പ്രൊഫസറുമാണ്

കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം വാർത്താവിനിമയം നഗരവൽക്കരണം എന്നീ മേഖലഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് കേന്ദ്രം അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് ന്റീതി ആയോഗ് ഉപദേഷ്ടാവ് അന്നാ റോയ് ആകാശവാണിയോട് പറഞ്ഞു നൂതന സങ്കേതങ്ങൾ വികസിപ്പിക്കാനും ക്ടർഷ്കൂർക്ക് അത് എത്തിക്കാനും നിർമ്മിത ബുദ്ധി സഹായകരമായ്ട്രീക്കുമെന്ന് അവർ പറഞ്ഞു

കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ മേനകാ ഗാന്ധി തുടങ്ങിയവർ അംഗങ്ങളാണ്

എസ് പ്രസിഡന്റ് ബറാക് ഒബാമ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റൺ എന്നിവരുടെ വസതികളിലേക്ക് തപാൽ മുഖേന അയച്ച സ്ഫോടനക വസ്തുക്കൾ നിർവീര്യമാക്കി

സ്ഫോടക വസ്തുക്കൾ വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞതായി യു എസ് രഹസ്യസ്ഫോടന വിഭാഗം അറിയിച്ചു

ആഭ്യന്തര സെക്രട്ടറി ഇതിനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് പ്രധാനമന്ത്രി തെരേസാ മേ പാർലമെന്റിൽ അറിയിച്ചു

ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസനനിധി പദ്ധതികൾക്കാണ്ട് അംഗീകാരമെന്ന് മന്ത്രി സുനിൽകുമാർ അറിയിച്ചു